ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറാംഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രിചാരണം നാളെ അവസാനിക്കും

യൂറോപ്യൻ പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ മുഖ്യമന്ത്രി പിണറായിവിജ്യൻ നെതർലന്റ്സിലെത്തി ഐ ടി മേഖലയില്ല് പ്രതിനിധികളുമായി ഇന്ന് ചർച്ചു

പോലീസ് സേന്യിലെ തപാൽ വോട്ട് തിരിമറി വിവാദത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ പോലീസ് നടപടി ഇന്ന് പ്രഖ്യാപിക്കാൻ സാദ്ധ്യത

തൃശ്ശൂർ പൂരത്തിലെ ആനയെഴുന്നള്ളത്ത് സംബന്ധിച്ച പ്രതിസന്ധി പരിഹരിക്കാൻ തിരുവനന്തപുരത്ത് ആന ഉടമകളുമായി ഇന്ന് ചർച്ചു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

നാലു രാജ്യങ്ങളാണ് മുഖ്യമന്ത്രി സന്ദർശിക്കുന്നത് ഔദ്യോഗിക സന്ദർശനത്തിന്റ ഭാഗമായി നെതർലന്റ്സിൽ എത്തിയ കാര്യം അദ്ദേഹം തന്നെയാണ് സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചത്

ടി മേഖല പ്രതിനിധികളുമായി മുഖ്യമന്ത്രി ഇന്ന് ചർച്ച നടത്തും പ്രളയ ദുരന്തം നേരിടുന്നതിൽ നെതർലന്റ് നടപ്പാക്കിയ മാതൃകപ്രദേശും സന്ദർശിക്കുന്ന അദ്ദേഹം നെതർലൻ്സിലെ മലയാളികളുമായും സംവദിക്കും

മലയാളി അസോസിയേഷൻ പ്രതിനിധികളും ശ്രീ

ഏതു തരത്തിലുള്ള അന്വേഷണമാണ് വേണ്ടതെന്ന് ഡി ജി പി തീരുമാനിക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

ജില്ലാ ആസൂത്രണ ഭവൻ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ ജില്ലാ കളക്ടർ അധ്യക്ഷത വഹിക്കും

തീർഥാടകരുടെ യാത്ര സുഗമമാക്കുന്നിതിന് വിമാനത്താവളത്തിൽ പരമാവധി സൌകര്യങ്ങൾ ഒരുക്കും

സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഇത്തവണ ഹജ്ജിന് പോകുന്ന തീർഥാടകർക്കായി കരിപ്പൂരിലും നെടുമ്പാശേരിയിലും എംബാർക്കേഷൻ പോയിന്റ് ഒരുക്കിയിട്ടുണ്ട്

സംബന്ധിച്ചും യോഗം വിലയിരുത്തി

പദ്ധതിക്ക് കിഫ്ബിയുടെ അംഗീകാരം ലഭിച്ചതോടെയാണ് പൊന്നാനിയുടെ സ്വപ്നം പൂവണിയുന്നത് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഗവൺമെന്റ് വിജ്ഞാപനം ഇറക്കിയിട്ടില്ല

തൃശൂർ പൂരം തൃശൂർ പൂരത്തിലെ ആനയെഴുന്നള്ളിപ്പ് പ്രതിസന്ധി പരിഹരിക്കാൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ക്തിരുവ്നന്തപുരത്ത് ഇന്ന് വൈകിട്ട് ചർച്ച നടത്തും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ആനയെ പൂരങ്ങളിൽ നിന്ന് വിലക്കിയിൽ പ്രതിഷേധിച്ച് എല്ലാ ആനകളെയും ഉത്സവങ്ങളിൽ നിന്റീ പിൻവലിക്കാൻ ഉടമകളുടെ സംഘടന തീരുമാനിച്ചതോടെയാണ് രൂപംകൊണ്ടത് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ മന്ത്രി വി എസ് സുനിൽകുമാർ പൂരത്തിന്റെ മുഖ്യ സംഘാടകരായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികളുമായി ഇന്നലെ ചർച്ച നടത്തിയിരുന്നു

തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നിലവിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് വിലക്കുള്ളതിനാൽ പൂരത്തിന് എഴുന്നള്ളിക്കാൻ ആവില്ലെന്ന് കളക്ടർ ടി വി അനുപമ തൃശൂരിൽ പറഞ്ഞു

നാളത്തെ കോടതിവിധി അനുസരിച്ചായിരിക്കും തീരുമാനമെന്നും അവർ വ്യക്തമാക്കി

കുടമാറ്റത്തിനുള്ള കുടകൾ അണിയായിൽ അവസാന ഘട്ട കൂടുതൽ വിവരങ്ങളുമായി ആകാൾവാണി തൃശ്ശൂർ പ്രതിനിധി ഭരിതാ പ്രതാപ്

നഗരത്തിലെ ഹോട്ടലുകൾ പഴകിയ ഭക്ഷണം ഫ്രീസറുകളിൽ സൂക്ഷിച്ചു വീണ്ടും ചൂടാക്കി നൽകുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് നോട്ടീസ് നൽകി പിഴ ഈടാക്കി

അജൈവ മാലിന്യങ്ങൾ സംഭരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ സൂക്ഷിക്കുകയും ജൈവ മാലിനൃങ്ങൾ അതാത് സ്ഥലത്ത് കുഴി എടുത്ത് മറവ് ചെയ്യുകയും ജില്ലയിലൊട്ടാകെ ചെയ്യും

ചികിത്സയിലൂടെ രോഗം പൂർണ്ണമായും ഭേദമാക്കാനാകുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ

ഇരുവരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിൽസയിലാണ് ബാങ്ക് അക്കൌണ്ട് അക്കൌണ്ട് വിവരങ്ങൾ വെളിപ്പെടുത്താതെ തന്നെ ബാങ്ക് അക്കൌണ്ടിൽ നിന്നും പണം നഷ്ടമാകുന്ന പരാതിയിൽ കൊല്ലം റൂറൽ പോലീസ് നടപടി ആരംഭിച്ചു

എ

ഐ നേതാക്കളും കോൺഗ്രസ് നേതാക്കളും സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് സമരസമിതി നേതാക്കൾ ഇന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരനുമായി കൂടിക്കാഴ്ച നടത്തും ബസ് അപകടം വയനാട് മാനന്തവാടിക്കടുത്ത് തലപ്പുഴ വരയാലിൽ ടിപ്പർ ലോറിയും കെ എസ് ആർ ടി

നിരവധി പേർക്ക് പരിക്കേറ്റു

സമുദ്ര നിരപ്പിൽ നിന്നുള്ള് ഉയരമാണിത്

കുടിവെള്ള വിതരണം മലമ്പുഴ ശുദ്ധജല പദ്ധതിയിലെ ജലസംഭരണി ശുചീകരിക്കുന്നതിനാൽ പാലക്കാട് നഗരസഭാ പരിധിയിൽ നാളെയും മറ്റന്നാളും ഈ മാസം പതിനഞ്ചിനും കുടിവെള്ള വിതരണം മുടങ്ങും നഗരത്തിന് പുറമെ മലമ്പുഴ അകത്തെ തറ പുതുപ്പരിയാരം മരൂത റോഡ് പിരായിരി പഞ്ചായത്തുകളിലും ഈ ദിവസങ്ങളിൽ കുടിവെള്ള വിതരണം മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു

മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലുള്ള നെൽവയലിൽ നിന്നാണ് മത്സ്യത്തെ കണ്ടെത്തിയത്